മൂന്നെണ്ണം കേരളത്തിലേയ്ക്ക്

പഞ്ചാബിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമുള്ള ട്രെയിനുകൾ ഇന്നും നാളെയുമായി സംസ്ഥാനത്തെത്തും

കണ്ടെയ്ൻമെന്റ് സോണുകളെ ഒഴിവാക്കി

പുൻ ചുഴലിക്കാറ്റ് ദുർബലമാകുന്നു അസമിലും മേഘാലയയിലും കനത്ത മഴയ്ക്ക് സാധ്യത

സൌദി അറേബ്യ യു

സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ട്രെയ്മീനിൽ ഉണ്ടായിരുന്നു രോഗലക്ഷണങ്ങൾ ഉണ്ടായതിനെ തുട്ർന്ന് ഒരാളെ ജനറൽ ആശുപത്രിയിലേയ്ക്ക് മാറ്റി

ഡൽഹി അടക്കം നഗരങ്ങളിൽ കൂടുങ്ങിയവരെ സൌജന്യമായി ഈ ട്രെയിനുകളിൽ നാട്ടിലെത്തിക്കും

ജയ്പൂരിൽ നിന്നും പുറപ്പെട്ട പ്രത്യേക ട്രെയിനിന് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകും ആലപ്പുഴ ഇൻഡ്രാ നിരീക്ഷണ കാലത്ത് പ്രവാസികൾക്ക് അന്നം മുടങ്ങാതിരിക്കാൻ ആലപ്പുഴ നഗരസഭ ആരംഭിച്ച പ്രവാസി അടുക്കള കോവിഡ് അതിജീവന രംഗത്ത് മികച്ച മാതൃകയാണ്

സമ്മർ ബംപർ അടക്കം എട്ട് പ്ലോട്ടറി ടിക്കറ്റുകൾ ഇന്നുമുതൽ ലഭ്യമാകും

കണ്ടെയ്ൻമെൻറ് സോണുകൾ ഒഴിവാക്കിയാണ് ടിക്കറ്റ് വിൽപ്പന ഞായറാഴ്ചകളിൽ വിൽപ്പന പാടില്ല സാമൂഹ്യ അകലം പാലിച്ചും മാസ്ക് ധരിച്ചുമായിരിക്കണം വിൽപ്പന

കാറന്റൈനിലുളള വൃക്തികളിൽ ആർക്കെങ്കിലും രോഗ ലക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ചികിത്സ ഈ സെന്ററിൽ നിന്നും നൽകും കോഴിക്കോട് ബീച്ച് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്

വിവിധ ഹോസ്റ്റലുകളിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികൾക്കും ഗൾഫിലും ലക്ഷദ്വീപിലും മറ്റ് ജില്ലകളിലും കുടുങ്ങിപ്പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും തുടർന്നുള്ള പരീക്ഷകൾക്ക് സൌകര്യപ്രദമായ സ്കൂളുകൾ പരീക്ഷാകേന്ദ്രങ്ങളായി തെരഞ്ഞെടുക്കാം

സ്വർണവില കുറഞ്ഞു

മുൻ പ്രധാനമന്ത്രി രാജീവ്ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആചരിക്കുന്നത് സഹായിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടാകണമെന്ന് ഉപരാഷ്ട്രപതി എം

രാജീവ്ഗാന്ധിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിലൂടെ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

അസം മേഘാലയ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

മീൻ കുളം നിർമ്മിക്കാൻ കൃഷിയിടം കുഴിച്ചപ്പോഴാണ് ചരിത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

എറണാകുളത്ത് പറവൂരിന് സമീപം ആലങ്ങാട് കുടുംബശ്രീ യൂണിറ്റാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ശ്രദ്ധ മൊബൈൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വെറ്റിനറി സർവ്വീസസ് എന്ന പുതിയ സംരംഭത്തിൽ എയർകണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തീയേറ്റർ പെറ്റ് ഗ്രൂമിങ്ങ് സംവിധാനം എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട്

ജില്ലയുടെ വിവിധ മേഖലകളിൽ പരിമിതമായ തോതിലാണ് സർവീസ് ആരംഭിച്ചത് സിറ്റി ബസുകളും ഭാഗികമായാണ് സർവീസ് നടത്തുന്നത്

എസ് ആർ

ജില്ലക്കകത്തു മാത്രം ഓടുന്ന ബസുകളിൽ ഇരുപതിൽ താഴെ യാത്രക്കാരെ മാത്രമേ അനുവദിക്കൂ